മെച്ചപ്പെടുത്തുന്ന പുതിയ കണ്ടുപിടിത്തങ്ങൾ രാജ്യത്തെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ദ്ധരും ഉറപ്പു വരുത്തണമെന്ന് ഉപരാഷ്ട്രപതി എം

സ്ഥാപനങ്ങളിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പ് സമാധാനപരമായി അവ്സാനിച്ചു

രാജ്യത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ പിഴവുകളില്ലാത്തതും ന് യാതൊരു കൃത്രിമവും നടത്താനാകാത്തതുമാണെന്ന് മുഖ്യതെരെഞ്ഞെടുപ്പ് കമ്മീഷണർ

എ യുടെ ശബരിമല സംരക്ഷണ യാത്ര നാളെ തലസ്ഥാനത്ത് സമാപിക്കും

വെങ്കയ്യനായിഡു സാങ്കേതികവിദഗ്ദ്ധരോടും എൻജിനീയർമാരോടും ആവശ്യപ്പെട്ടു

കൂടുതൽ വിവരങ്ങളുമായി സുവർണ്ണ

പൌരന്മാർക്ക് ആവശ്യമായ വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉള്ളത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിന് തുടർച്ചയായ പരിശ്രമങ്ങൾ ആവശ്യമാണെന്നും ശ്രീ

യുവ സംരംഭകർക്ക് തങ്ങളുടെ ആശയങ്ങൾ വിജയകരമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ലഭിക്കേണ്ടതുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്

വി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

തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ നവമാധ്യമങ്ങളെ ദുരുപയോഗു ചെയ്യുന്നത് തടയും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

ഇന്ത്യൻ ടെക്സ്റ്റൈൽ മേഖല നൈപുണ്യ വിശകലനവും സ്വതന്ത്ര വിപണനത്തിനുള്ള വഴിയൊരുക്കവും എന്ന വിഷയത്തിൽ കോയമ്പത്തൂരിൽ നടന്ന ശിൽപശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഇന്ത്യൻ ടെക്സ്പ്രെഴ്നേഴ്സ് ഫെഡറേഷനാണ് ശിൽപശാല സംഘടിപ്പിച്ചത്

പാട്യാലയിൽ പ്രധാനമന്ത്രി കൌശൽ കേന്ദ്ര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇന്ത്യയെ ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമാക്കി മാറ്റുക എന്ന പ്രധാനമന്ത്രിയുടെ സ്വപ്നം സഫലമാകുന്നതിനുള്ള ചുവടുവയ്പാണ് ഈ സംരംഭമെന്ന് അവർ പറഞ്ഞു

ദേശീയ മലേറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജയ്പൂരിൽ നിന്നും കൊതുക് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

ഡി എ യുടെ ശബരിമല സംരക്ഷണ യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി

ആചാര സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസി സമൂഹം തെരുവിലിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ചതിക്കാൻ കോൺഗ്രസും അപമാനിക്കാൻ സിപിഎമ്മും ശ്രമിക്കുന്നതായി ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ പി

ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അനുഗ്രഹം യാത്രക്കുണ്ടായി എന്നും അദ്ദേഹം പ്റ്റഞ്ഞു അതേസമയം സംരക്ഷണയാത്രയുടെ സമാപനം നാളെ തലസ്സ്ഥാനത്ത് നടക്കും

റയിൽവേയുടെ സേവനങ്ങൾ സംബന്ധിച്ച ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിലൂടെ മികച്ച രീതിയിലുള്ള ഉപഭോക്തൃ സേവനമാണ് ഇതിലൂടെ ലഭ്യമാകുന്നതെന്ന് റെയിവേ അറിയിച്ചു

ഉൾഫ തീവ്രവാദികളെ നേരിട്ടതിലുള്ള ധീരതയും അസാമാന്യ നേതൃത്വുമാണ് ഇൻസ്പെക്ടർ ലോഹിത് സൊനോവാളിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്

ധീരതയ്ക്കും സാഹസികതയ്ക്കും ജീവത്യാഗത്തിനും നൽകുന്ന സൈനിക ബഹുമതിയാണ് കീർത്തി ചക്ര രാജ്യത്തെ രണ്ടാമത്തെ സൈനിക ബഹുമതിയാണിത് അശോകചക്രയാണ് ഒന്നാമത്തേത്

തുടൂർന്നുണ്ടായ വെടിവയ്പിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു പരിക്കേറ്റ ് പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്

അതേസമയം സുഗ്മ ജില്ലയിൽ മൂന്ന് മാവോയിസ്റ്റുകൾ പോലീസിനുമുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ പുനരധിവാസ നയത്തിൽ ഉൾപ്പെടുത്തി കീഴടങ്ങിയവർക്ക് വേണ്ട അവശ്യസഹായം നൽകുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

ഇന്ന് നടക്കുന്ന ഫൈനലിൽ കോറിക് നൊവാക് ദ്യോകോവിച്ചിനെ നേരിടും

പ്രസിഡന്റ് ഡൊണാൾഡ് ഖഷോഗ്റി കൊല്ലപ്പെട്ടുവെന്ന് തെളിഞ്ഞാൽ സ്നാദി നേരിടാൻ പോകുന്നത് കടുത്തശിക്ഷയാണെന്ന് ഇന്നല്ല സി ബി